തുടരുമെന്നും കാർഷിക തൊഴിൽ മേഖലകളിലെ മാറ്റങ്ങൾ കർഷകരെയും തൊഴിലാളികളെയും ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പ്രെതിഷേധവുമായി ഇന്തൃ

വിദേശകാര്യ മന്ത്രി ഡോ എസ് ജയശങ്കർ അടുത്ത മാസം ആറിന് ജപ്പാൻ സന്ദർശിക്കും

നിലവിലെ സ്ഥിതിയിൽ ലോക്ക്ഡൌൺ പരിഹാരമാർഗം അല്ലെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയായതായി മുഖ്യമന്ത്രി

ഉത്തരാഖണ്ഡിൽ നമാമി ഗംഗയുടെ കീഴിലുള്ള ആറ് മെഗാ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ കാർഷിക മേഖലകളിൽ പരിഷ്കരണം കൊണ്ടുവന്നതിന് എതിരെ പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷത്തെ അദ്ദേഹം വിമർശിച്ചു കാർഷികോൽപ്പന്നങ്ങളുടെ സുഗ്മമ്യായ് വിൽപ്പനയ്ക്കു തടസ്സം സൃഷ്ടിക്കാനാണ് പ്രതിഷേധ്ക്കാർ ശ്രമിക്കുന്നതെന്നും അവർ കർഷകരെ അപമാനിക്കുകിയ്ട്ണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുറഞ്ഞ താങ്ങുവില സ്ത്രമ്പദായം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു

ഓരോ തുള്ളി ജലവും സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എൽ ഡി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമാണം തുടങ്ങിയവയാണ് പദ്ധതികൾ

പുതിയ സാങ്കേതികവിദ്യയും സമീപനവും സ്ഥീകരിച്ചു വേണം മലിനീകരണ നിയന്ത്രണ നടപടികൾ നടപ്പാക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു

അതുകൊണ്ടുതന്നെ ഋഷികേശിലെ ലക്കാഡ് ഘട്ടിലെ മലിനജല സംസ്കരണ പ്ലാന്റുകളുടെ ഉദ്ഘാടനം ഗംഗാ നദി മാലിന്യമുക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും

ഗംഗാ നദിയുടെ സംസ്കാരം ജൈവ വൈവിധ്യങ്ങൾ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനായി ഗംഗയുമായി ബന്ധപ്പെട്ട ആദ്യ മ്യൂസിയമ്യായ ഗംഗ അവലോകൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമവേദികളിൽ പരാതി ഉന്നയിക്കാനും പാക്കിസ്ഥാന് അവകാശമില്ല അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഇന്ത്യൻ മണ്ണിൽ നിന്നും പിൻവാങ്ങണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ തെരഞ്ഞെടുപ്പും കാവൽസർക്കാരും സംബന്ധിച്ച് ഉത്തരവും അനന്തരനടപടികളും ഇന്ത്യ തള്ളി കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടായി ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ പാക്കിസ്ഥാൻ കയ്യേറ്റവും പാക്ക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും എല്ലാക്കാലവും മറച്ചുവെക്കാനാകില്ലെന്നും ഇന്ത്യ അറിയിച്ചു

യുദ്ധമില്ലെങ്കിലും സമാധാനമില്ലെന്ന സ്ഥിതിയാണെന്നും കിഴക്കൻ ലക്ട്രാക്കിൽ ചൈനയുമായുള്ള തർക്കങ്ങളെ പരാമർശിച്ച് എയർ പ്രീഫ് ബദൌരിയ പറഞ്ഞു

തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏതാനും നിയമസഭാ മാസത്തേക്കു മാത്രമായി സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്നാണ് ഇന്നു ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിഷൻ യോഗം തീരുമാനിച്ചത് നിയമി മന്ത്രാലത്തിന്റെയും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസറുപ്പെട്ടയും അഭിപ്രായം തേടിയ ശേഷമാണ് തെഞ്ഞെടുപ്പ് കമ്മീഷ്ട്രിന്റെ ്തീരുമാനം

മൂന്ന് ദിവസത്തെ ബിഹാർ സന്ദർശനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്രയും രാജീവ് കുമാറും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്

തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലങ്കാന ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവ സംഭരിക്കുന്നത്

ജപ്പാൻ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും

കോവ്ടിസ്ക്നന്തര ലോകത്ത് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാം എന്നത് സംബന്ധിച്ച് നാലു രാജ്യങ്ങളിലെ വിദേശകാരൃ മന്ത്രിമാരുടെ ്യോഗ്ഗം ചർച്ച ചെയ്യും

പ്രതിസന്ധി നേരിടുന്നതിന് ലോക്ഡൌൺ ഒരു പരിഹാര മാർഗമല്ലെന്ന നിലപാടാണ് എല്ലാ കക്ഷികളും സ്വീകരിച്ചത്

വിവാഹം മരണം രാഷ്ട്രീയ ചടങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം സർക്കാർ നിശ്ചയിക്കും

നിലവിലുള്ള സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനം എല്ലാഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും നാടിനെയും ജനങ്ങളെയും മുൻനിർത്തിയുള്ള ഉത്തരവാദിത്ത പൂർണമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഒരുമിച്ച് നീങ്ങണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർഥിച്ചു

ഈ നില തുടർന്നാൽ വലിയ അപകടത്തിലേക്കാണ് എത്തുക അതിനാൽ എന്തു വിലകൊടുത്തും രോഗവൃാപനം ചെറുക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പയ്യന്നൂർ ഫറോക്ക് ചടയമംഗലം പത്തനാപുരം സബ് ആർടി ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം